സന്തുലിതാവസ്ഥ പുനർ നിർവചിച്ച നീതിന്യായ സംവിധാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദനം

പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു

നിയമം പരമോന്നതമാണെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് നീതിന്യായ വൃവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും ശ്രീ

ന്യൂഡൽഹിയിൽ സുപ്രീംകോടതി സ്ക്ഷ്പടിപ്പിച്ച അന്താരാഷ്ട്ര ദ്വിദിന ശില്പശാലയെ അഭിസംഭ്ഷ്ടാധ്ന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി ഉദ്യൻ

ഇന്ത്യൻ നീതിന്യായ വൃവസ്ഥയും നിയമസഭയും എക്സിക്യുട്ടീവും പരസ്പരം ബഹുമാനിച്ച് ഭരണഘടനയുടെ ചൈതന്യം മുന്നോട്ട് പോകുന്നത് അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജുഡീഷ്യറിയുടെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന സത്യത്തിനും സേവനത്തിനുമായി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടതായും അദ്ദേഹം അനുസ്മരിച്ചു വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ പുനർനിർവചിച്ചതിന് ശ്രീ

അതിവേഗ വളർച്ചയും പരിസ്ഥിത സംരക്ഷണവും ഒരുമിച്ചുകൊണ്ടു പോകാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നെന്നും എന്നാൽ ഇന്ത്യ ഈ കാഴ്പ്പാടിൽ മാറ്റും വരുത്തിയെന്നും രാജ്യം അതിവേഗം പുരോഗമിക്കുകയാണെന്നും രാജ്യത്തിന്റെ വനവിസ്തൃതി വർദ്ധിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഭരണഘടന ശക്തവും സ്വതന്ത്ര്യവുമായ ഒരു നിയമ വ്യവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഈ അടിസ്ഥാന സവിശേഷത അതേപടി നിലനിർത്താൻ ഇന്ത്യ പരിശ്രമിച്ചിട്ടുണ്ടെന്നും ചടങ്ങിൽ സംബന്ധിച്ചു സുപ്രീം കോടതി ചീഫ് ജസ്റ്റീസ്സ് എസ്

നിയമമന്ത്രി രവിശങ്കർ പ്രസ്ടാദ് അറ്റോർണി ജനറൽ കെ

നാഗേശ്വറാവു ജസ്റ്റിസ് എൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വാണിജ്യ സെക്രട്ടറി വിൽബർ റോസ് ഊർജ്ജ സെക്രട്ടറി ഡാൻബ്രൌലറ്റ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഒബ്രിംഗ് ആക്റ്റിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് മിക് മുൾവാനെ പ്രസിഡന്റിന്റെ മുതിർന്ന ഉപദേഷ്ടാക്കളായ സ്റ്റീഫൻ മില്ലർ ഡാൻസ് സ്കാവിനോൺ മുതലായ പ്രമുഖരാണ് പ്രതിനിധി സംഘത്തിലുള്ളത്

പ്രസിഡന്റിനും പ്രഥമ വനിതയ്ക്കും താജ്മഹലും ചരിത്ര സ്മാരകവും ഉചിതമായി കാണാനുള്ള അവസരമൊരുക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക ഇടപെടലുകളോ മുതിർന്ന ഉദ്യാഗസ്ഥരുടെ സാന്നിദ്ധ്യമോ അവിടെ ഉണ്ടാകില്ല

ആഗോളതലത്തിൽ മുന്നോട്ട് കുതിക്കുന്ന രാജൃത്തിന്റെ പുരോഗതിയെ കോൺഗ്രസ് ചോദൃം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യാ സന്ദർശനത്തിൽ കോൺഗ്രസ് അസന്തുഷ്ടരാണെന്നും പാർട്ടി വക്താവ് സമ്പിത് പത്ര ആരോപിച്ചു

കാർഷികവും ഗാർഹികവുമായ ചെലവുകൾക്കായി കർഷക കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം

രണ്ട് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള ചെറുകിട ഇടത്തരം കർഷ്ടകർക്കാണ് പദ്ധതിയുടെ ഗുണഫലം ലഭിച്ചിരുന്നത് പിന്നീട് ക്ട്ര്ഷ്ടിഭൂമിയുടെ വിസ്തൃതി കണക്കാക്കാതെ എല്ലാ കർഷകർക്കും ആ്നുകൂല്യം ലഭിക്കുംവിധം പദ്ധതി വിപുലീകരിച്ചു

ഇന്റർനെറ്റും സമൂഹ് മാധ്യമങ്ങളും പത്ര പ്രവർത്തനത്തെ ജനാധിപത്യ വൽക്കരിച്ചുവെങ്കിലും അത് ഉത്കണ്ഠയ്ക്ക് കാരണമായെന്നും എന്നാൽ പരമ്പരാഗത മാധ്യമങ്ങളാണ് വാർത്തകളുടെ പ്രാമാണികരണത്തിനുള്ള അടിസ്ഥാനമെന്നും ശ്രീ

കുറ്റവാളിയായ വിനയ്കുമാർ ശർമ്മയുടെ ഹർജിയാണ് അഡീഷണൽ സെഷൻ ജഡ്ജി ധർമ്മേന്ദർ റാണ നിരസിച്ചത് പ്രതിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും വലതു കൈയ്യിൽ ഒടിവുണ്ടെന്നും മാനസിക രോഗബാധയിൽ ബുദ്ധിമുട്ടുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രതികളുടെ വാദങ്ങൾ വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നും വളച്ചൊടിയ്ക്കപ്പെട്ടവയാണെന്നും കോടതി കണ്ടെത്തി

ആഗോള ് ശ്രമങ്ങൾ തുടരുമ്പോഴും ഇത്തരം ജീവികളുടെ വംശനാശം സംഭവിക്കുന്നതായി കൺവെൻഷൻ വിലയിരുത്തി ജീവജാലങ്ങളെ ഇനം തിരിച്ച് അവ നേരിടുന്ന ഭീഷണികൾ വിലയിരുത്താനും കൺവെൻഷൻ തീരുമാനിച്ചു അന്താരാഷ്ട്ര തലത്തിൽ നയപരിപാടികൾ ആവിഷ്ക്കരിച്ച് നടപ്പാക്കാനും തീരുമാനമായി

തിരിച്ചന്തൂരിൽ ഡോ ശിവന്തി ആദിതനാർ മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

അടിയന്തിരാവശ്യങ്ങൾക്കല്ലാതെ സിംഗപ്പൂരിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ പൌരൻമാർക്ക് നിർദ്ദേശം നൽകാൻ യോഗം തീരുമാനിച്ചു

ഖേലോ ഇന്തൃ തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കായിക താരങ്ങളുടെ പങ്കാളിത്തം ഇരട്ടിയായി ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കായിക പ്രതിഭകൾക്ക് രാജ്യത്തിന്റെ അഭിമാന താരങ്ങളായി മാറുന്നതിന് കഴിഞ്ഞു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് കേന്ദ്ര കായികമന്ത്രി കിരൺ റിജിജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു

പുർുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ ഇനത്തിലാണ് ഉദ്ഘാടനദിനത്തിൽ പുനിയ ഫൈനലിലെത്തിയത് വിവിധ ഇനങ്ങളിൽ മൂന്ന് ഇന്ത്യൻ താരങ്ങൾ കൂടി ഫൈനലിലെത്തി